ലോക്ഡൌൺ ഫലപ്രദമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോവിഡിനെ നേരിടുന്നതിനുള്ള ഗവേഷണങ്ങൾ ഊർജ്ജിതമാക്കണമെന്നും പ്രധാനമന്ത്രി

ഹോട്ട് സ്പോട്ട് റെഡ് സോൺ എന്നിവയിലും മാറ്റം

ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടു സ്ഫോടനത്തിൽ അഞ്ച് കുട്ടികൾക്ക് പരിക്ക്

മുഖ്യമന്ത്രിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിങ്ങിലാണ് അദ്ദേഹം ഇക്കാരൃം പറഞ്ഞത്

കൃതൃസമയത്തുള്ള ഫലപ്രദമായ ഇടപെടൽ മൂലം നിരവധ്യി പേര്ുടെ ജീവൻ രക്ഷിക്കാനായി

ചുമ ജലദോഷം തുടങ്ങിയ രോഗലക്ഷണ ങ്ങളുള്ളവർ പരിശോധനയ്ക്കായി മുന്നോട്ട് വരുന്നത് സ്വാഗതാർ ഹമാണ് സമ്പദ്വ്യവസ്ഥയ്ക്കും കോവിഡിന് എതിരെയുള്ള പോരാട്ടത്തിനും ഒരേ പ്രാധാനൃം നൽകണം

കോവിഡിനെ നേരിടാനുള്ള ഗവേഷണങ്ങളും കണ്ടുപിടിത്ത ങ്ങളും സർവകലാ ശാലകൾ ഊർജ്ജിതമാക്കണം രാജ്യത്തെ ഹോട്ട്സ്പോട്ടുകളിൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും നടപ്പാക്കാൻ അതാത് സംസ്ഥാനത്തെ സർക്കാരുകൾ കർശന നടപടിയെടുക്കണമെന്നും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടു റെഡ്സോണു കളെ ഓറഞ്ച് സോണൂകളാക്കാനൂം ഓറഞ്ച് സോണൂകളെ ഗ്രീൻ സോണുകളാക്കാനുമുള്ള ഘട്ടം ഘട്ടമായുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം മുഖ്യമന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് ആകാശവാണി

മഹാരാഷ്ട്രയിൽ രോഗബാധിതരുടെ ആയി

ഏതെങ്കിലും പ്രത്യേക വിഭാഗമോ ആരോഗൃ പ്രവർത്തകരോ ശുചീകരണത്തൊഴിലാളികളോ ഇതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടരുത് എന്ന് ആരോഗ്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ലവ് ് അഗർവാൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

രോഗ മുക്തരായവരെ പ്താസ്മ തെറാപ്പിക്ക് ഉപയോഗപ്പെടുത്താമെന്നും അദ്ദേഹം പറഞ്ഞു

വൈറസ് വ്യാപനം തടയാൻ കർശന നടപടിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടതായും ആരോഗ്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി വ്യക്തമാക്കി

കാലാവസ്ഥാ വൃതിയാനത്തിന് എതിരായ വെല്ലുവിളികളും ലോകം ഒറ്റക്കെട്ടായി നേരിടണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു

സി അധികജോലി അലവൻസ് മെഡിക്കൽ ബില്ലുകൾ ആനുകൂലൃങ്ങൾ എന്നിവ നിർത്തിവയ്ക്കുന്നു എന്നുള്ള വാർത്ത കേന്ദ്ര സർക്കാർ നിഷേധിച്ചു അത്തരമൊരു തീരുമാനം സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ട്വീറ്റ് ചെയ്തു ഇത്തരം ആനുകൂല്യങ്ങൾ നിലവിലുള്ള രീതിയിൽ തന്നെ തുടരുമെന്നും ട്വീറ്റിൽ പറയുന്നു

ഇതിൽ അഞ്ചുപേർ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്

ഹോട്ട്സ്പോട്ടുകൾ റെഡ്സോണുകൾ എന്നിവയിൽ മാറ്റം വന്നിട്ടുള്ളതായും മുഖ്യമന്ത്രിക്ക്അറിയിച്ചു

സംസ്ഥാനത്ത് ചരക്കു്നീക്കം സാധാരണ നിലയിലേക്ക് വരികയാണെന്നും ശ്രീ

കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്ത ജില്ലകളിൽ ആൾക്കൂട്ടങ്ങൾ പൊതുഗതാഗതം എന്നിവ നിയന്ത്രിച്ചും അന്തർ സംസ്ഥാന അന്തർജില്ലാ യാത്രകൾ നിയന്ത്രിച്ചും ശാരീരിക അകലം പാലിച്ചും ഘട്ടം ഘട്ടമായി വേണം ലോക്ഡൌൺ പിൻവലിക്കേണ്ടതാണ്

ഖാസിഗുണ്ടിലെ ലോവർമുണ്ട പ്രദേശത്താണ് ഇന്ന് രാവിലെ ഏറ്റുമൂട്ടലുണ്ടായത് പ്രദേശത്ത് ഭീകരരുടെ സാന്നിദ്ധ്യമുണ്ടെന്ന വിവർളത്ത് തുടർന്ന് സൈന്യവും സി

എഫും സംയുക്തമായ്ടിക് പ്രദേശത്ത് തെരച്ചിലിൽ നടത്തുകയായിരുന്നുവെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

പ്രദേശത്ത് ഒളിച്ചിരുന്ന ഭീകരർ സ്റ്റൈയത്തിന് നേരെ തുടരെ വെടി ഉതിർക്കുകയായിരുന്നു

ബൊളീവിയ ബ്രസീൽ മെക്സിക്കോ സ്വീഡൻ സ്വിറ്റ്സർലന്റ് തുടങ്ങിയ രാജൃങ്ങളിൽ കൂടുതൽ പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു